പാർലമെന്റ് പാസാക്കിയ കർഷക ബില്ലുകൾ ഇന്ത്യൻ കാർഷിക മേഖലയുടെ ചരിത്രത്തിൽ നാഴികക്കല്ലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബില്ലുകൾ കർഷകരെ ശാക്തീകരിക്കുമെന്നും പ്രധാനുമന്ത്രി

ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദം രൂപപ്പെട്ടതിനാൽ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധൃത ജാഗ്രത നിർദ്ദേശം

പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടയിൽ ശബ്ബ വോട്ടോടുകൂടിയാണ് ബില്ലുകൾ പാസാക്കിയത്

ഇതിനിടെ ശബ്പവോട്ടോടെ ബില്ലുകൾ പാസാക്കി പ്രത്യേക ലൈസൻസോ സംഭരണപരിധിയോ ഇല്ലാതെ രാജ്യത്തെ വിടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിന് ബിൽ വ്യവസ്ഥ ചെയ്യുന്നു ഇതു വഴി മികച്ച വില ഉറപ്പാക്കാനാകുമെന്നാണ് വിലയിരുത്തൽ

ചരിത്രപരമായ നിയമനിർമാണമാണ് ഇതെന്ന് ബില്ലുകൾ രാജ്യസഭയിൽ അവതരിപ്പിച്ച കൃഷിമന്ത്രി നരേന്ദ്ര സിങ് തോമർ പറഞ്ഞു കാർഷികോൽപ്പന്ന കമ്പോള കമ്മിറ്റികളുടെ നിയന്ത്രണത്തിനപ്പുറം രാജ്യത്ത് എവിടെയും സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കർഷകർക്ക് അവസരമൊരുങ്ങും ഇത് കാർഷിക മേഖലയിൽ വിപ്തവകരമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കർഷകരെ ശാക്തീകരിക്കുന്നതും കാർഷികമേഖല നവീകരിക്കുന്നതുമായ ബില്ലുകൾ പാസ്സായതിലുള്ള ആഹ്താദം അദ്ദേഹം രാജ്യത്തെ കഠിനാധ്വാനം ചെയ്യുന്ന കർഷകരുമായി പങ്കുവച്ചു ഇടനിലക്കാരില്ലാതെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാൻ കഴിയുന്നതോടെ കർഷകർക്ക് യഥാർത്ഥ വരുമാനം ലഭിക്കും ഇത് കർഷകർക്ക് സമ്പൽ സമൃദ്ധി പ്രധാനം ചെയ്യുമെന്നും അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു

കോൺഗ്രസ്സ് തൃണമൂൽ കോൺഗ്രസ്സ് ഡിഎംകെ ഇടത് പാർട്ടികൾ തുടങ്ങിയവരുടെ പ്രതിനിധികൾ സഭ പിരിച്ച് വിട്ടതിന് ശേഷവും രാജ്യസഭയുടെ നടുത്തളത്തിൽ ഇരുന്ന് പ്രതിഷേധിച്ചു പിന്നീട് പാർലമെന്ററിലെ മഹാത്മാഗാന്ധി പ്രതിമയുടെ മുന്നിൽ നിന്നും അവർ പ്രതിഷേധം നടത്തി

രാജ്യസഭയിൽ ചർച്ചകൾ അവസാനിക്കുന്നതുവരെ ലോക്സഭ സമ്മേളിക്കരുതെന്ന് കോൺഗ്രസ് അംഗം അധിർ രഞ്ജൻ ചൌധരി സ്പീക്കർ ഓം ബിർളയോട് ആവശ്യപ്പെട്ടു എന്നാൽ സ്പീക്കർ ഈ ആവശ്യം നിരാകരിക്കുകയായിരുന്നു

ഫണ്ട് സ്വീകരിക്കുന്ന സംഘടനകളുടെ എല്ലാ ഭാരവാഹികൾക്കും ആധാർ നിർബന്ധമാക്കും സർക്കാർ ജീവനക്കാർക്ക് വിദേശ ധനസഹായം സ്വീകരിക്കാനാവില്ല ആധാർ സംബന്ധിച്ച സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ബിൽ കൊണ്ടുവന്നതെന്ന് കേന്ദ്രആഭ്യന്തര സഹ മന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു

ഉത്തർപ്രദേശ് ജാർഖണ്ഡ് എന്നീ അയൽ സംസ്ഥാനങ്ങളുമായുള്ള ഗതാഗത ബന്ധം മെച്ചപ്പെടുത്തുന്ന പദ്ധതി ബിഹാറിനുള്ളിലെ യാത്രാ സൌകര്യവും വലിയ തോതിൽ വികസിപ്പിക്കും

പൊതു സ്വകാര്യ മേഖലകളിലായി രണ്ടായ്ടിരത്തോളം പരിശോധനാ ലാബുകൾ ആണ് രാജ്യത്ത് പ്രവർത്തിക്കുന്നത്

കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണ് കോവിഡ് പരിശോധന നടത്താതെ വ്യാജ സർട്ടിഫിക്കറ്റ് നൽകുന്നതിലൂടെ കൂടുതൽ ആളുകളിലേക്ക് രോഗം പകർത്താനാണ് ഇത്തരക്കാർ ശ്രമിക്കുന്നത്

രോഗവ്യാപനം വരും ദിവസങ്ങളിൽ ഇനിയും വർധിക്കാനിടയുണ്ടെന്നും കളകൂർ അറിയിച്ചു

വൈറസിനൊപ്പം ജാഗ്രതയോടെ ജീവിക്കാൻ ശീലിച്ചെങ്കിൽ മാത്രമേ വാക്സിനുകൾ വരുന്നതു വരെ രോഗത്തെ നിയന്തിച്ചു നിർത്താനാാകൂ എന്നും ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകി

ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമുണ്ട് മൽസ്യ തൊഴിലാളികൾ കടലിൽ പോകാൻ പാടില്ല റെഡ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിൽ ദുരന്ത സാധ്യത മേഖലകളിൽ ഉള്ളവരെ ഉടനെ തന്നെ മുൻകരുതലിന്റെ ഭാഗമായി ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടതാണ്

ടോസ് നേടിയ പഞ്ചാബ് ഡൽഹിയെ ബാറ്റിംഗിനയയ്ക്കുകയായിരുന്നു

ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി പിജയൻ പ്പീഡിയോ കോൺഫറൻസിംഗ് വഴി നിർവ്വഹിക്കും